ഗജ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാടിന് പത്ത് കോടി രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു

ശബരി മല വരുമാനത്തിൽ ഗണ്യമായ കുറവ്

ആര് പാലങ്ങളുടെ ടോൾപിരിവ് നേരത്തെ നിർത്തലാക്കിയിരുന്നു ഗജ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാടിന് പത്ത്കോടി രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരു മാനിച്ചു

സംസ്ഥാനത്തെ റേഷൻ ചില്ലറ വ്യാപാരികളുടെ കമ്മിഷൻ പാക്കേജ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി എ

വൈ ഒഴികെ എല്ലാ വിഭാഗങ്ങൾക്കും അരി ഗോതമ്പ് ആട്ട എന്നിവയുടെ കൈകാര്യ ചെലവ് ഒരു രൂപയിൽ നിന്ന് രണ്ട് രൂപയായി വർധി പ്പിക്കാനും തീരുമാനിച്ചു

സൈനിക സേവനത്തി നിടെ മരിക്കുന്ന സൈനികരുടെ ആശ്രിതർ വാങ്ങുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഇളവ് ചെയ്യാൻ തീരു മാനിച്ചു

കേരള മിനറൽസ് ആന്റ് മെറ്റൽസിലെ ഇന്ധന സംവിധാനം എൽ

ജിയിൽ നിന്ന് എൽ

ശബരിമല സന്നിധാനത്തെ നിയന്ത്രണങ്ങൾ നീക്കി തീർത്ഥാടകർക്ക് വിരി വെക്കുന്നതിനും നാമംജപിക്കുന്നതിനും ഏർപ്പെടുത്തിയ നിയ ന്ത്രണങ്ങളാണ് നീക്കിയത് രാത്രിയിലും പകലും വലിയ നടപ്പന്ത ലിൽ ഇനി വിരിവെക്കാം നാമജപത്തിനായി കൂട്ടംകൂടുന്നതിനും ഇനി വിലക്കില്ല സംഘർഷാവസ്ഥ ഉണ്ടായാൽ മാത്രമേ പൊലീസ് ഇടപെടൂവെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു

ശബരിമല വിഷയത്തിൽ സിപിഎമ്മും ബി

പിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുസ്ലിംലീഗ് ദേശീയ ജന റൽ സെക്രട്ടറി പി

ഈ വിഷയത്തിൽ ഇരുപാർട്ടികളും ഒത്തുകളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനയാ ത്രയ്ക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി യാത്ര ഇന്ന് വൈകീട്ട് തലശേരിയിൽ സമാപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ റെക്കോർഡ് പോളിങ്

അവസാന കണക്കെടുപ്പിൽ പോളിങ് ശതമാനം ഇനിയും ഉയർന്നേക്കാമെന്ന് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ അറിയിച്ചു

അതെസമയം വോട്ടിങ് യന്ത്രങ്ങളിൽ തകരാർ കണ്ടെത്തിയ ബൂത്തുകളിൽ റീപോളിങ് വേണമെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു മൂന്ന് മണിക്കൂറോളം വോട്ടിങ് യന്ത്രങ്ങൾ പ്രവർത്തന രഹിതമായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറ ഞ്ഞു സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ അലോക് വർമ നൽകിയ ഹർജി സുപ്രിംകോടതി ഇന്ന് പരിഗ ണിക്കും കേന്ദ്ര വിജിലൻസ് കമ്മിഷൻ അലോക് വർമക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് വർമ നൽകിയ മറുപടി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് പരിശോധിക്കും

നാഗേശ്വര റാവു മുദ്രവെച്ച കവറിൽ നൽകിയ റിപ്പോർട്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരും സിബിഐ ഓഫീസർമാർക്കെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനായ കോമൺകോസ് സമർപ്പിച്ച പ്രത്യേകാനുമതി ഹർജി സുപ്രിംകോ ടതി പരിഗണിക്കാനിടയുണ്ട് സുപ്രിംകോടതി വിധി നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് ഹൈക്കോടതിയുടെ പരാമർശം പിറവംപള്ളിയുമായി ബന്ധപ്പെട്ട സുപ്രിംകോടതി വിധി നടപ്പാക്കാ ത്തതെന്ത് കൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചു വൻതോതിൽ പൊലിസിനെ വിന്യസിച്ചും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും ചിലടി യത്ത് സുപ്രിംകോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കു കയാണെന്ന് കോടതി പറഞ്ഞു സുപ്രിംകോടതിവിധി നടപ്പാക്കണ മെന്ന് ആവശ്യപ്പെട്ട് പിറവംപള്ളി വികാരി ഉൾപ്പെടെ നൽകിയ ഹര ജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം ധനമന്ത്രി അരുൺജെയ്റ്റ്ലി അടുത്ത സാമ്പത്തിക വർഷത്തെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി ഒന്നിന് ലോക്സഭയിൽ അവതരിപ്പി ക്കും ഇതിന്റെ തയാറെടുപ്പുകൾ ആരംഭിച്ചതായി ധനമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു അടുത്ത വർഷം ലോക്സഭാ തെര ഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നരേന്ദ്രമോദി ഗവണ്മെന്റിന്റെ അവ സാന ബജറ്റായിരിക്കും ഇത് എല്ലാ ജില്ലകളിലും നൈപുണ്യവികസനത്തിനായി രണ്ടുവീതം സ്കിൽ പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോ

ടി ജലീൽ പറഞ്ഞു അഡീഷണൽ സ്കിൽ അകിസിഷൻ പ്രോഗ്രാമിന്റെ ആഭി മുഖ്യത്തിൽ ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ ധാരണാപത്ര കൈമാറ്റച്ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിറ്റ് സ്കിൽ പാർക്കുകൾ വഴി ജനങ്ങളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്താനുതകുന്ന നൈപുണ്യ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്

പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒൻപത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളാണ് സ്ഥാപിക്കുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലോകകപ്പ് ഹോക്കിയിൽ ആദ്യമത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഇന്ത്യ തോൽപിച്ചത് യുവതാരം സിമ്രജിത്ത് സിങ് മൂന്ന് മിനുട്ടു കൾക്കുള്ളിൽ രണ്ട് ഗോളുകൾ നേടി ദക്ഷിണാഫ്രിക്കയെ ഞെട്ടി ച്ചു ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ ബെൽജിയം കാനഡയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും

ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന എ ടി കെ ഗോവ എഫ് സി മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു

ഐഎസ്ആർഒ വികസിപ്പിച്ച ഇന്ത്യയുടെ അതിനൂതന ഭൌമനി രീക്ഷണ ഉപഗ്രഹം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ് സാറ്റലൈറ്റ് ഇന്ന് വിക്ഷേപിക്കും

മികച്ചു നടനായി ചെമ്പൻ വിനോദും സംവിധായകനായി ലിജോജോസ് പെല്ലിശേ രിയും തിരഞ്ഞെടുക്കപ്പെട്ടു ഈ മ യൌ എന്ന ചിത്രത്തിലെ ഈശി എന്ന കഥാപാത്രത്തെ തന്മയീഭാവത്തോടെ അവതരിപ്പിച്ചാണ് ചെമ്പൻവിനോദ് രജതമയൂരം നേടിയത് ഇതേ ചിത്രത്തിന്റെ സംവി ധാന മികവിനാണ് ലിജോജോസിന് പുരസ്കാരം

ഇന്ത്യൻ സിനിമയ്ക്കു നൽകിയ സമഗ്രസംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് മുതിർന്ന ബോളിവുഡ് തിരക്കഥാകൃത്ത് സലിംഖാൻ അർഹനായി നവോത്ഥാന ചിന്തകളും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് ഇട പെടൽ ്ക്ലാസുകളിൽ നിന്ന് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു ഇതനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരി ക്കുന്നത് ഗവൺമെന്റ് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അന്ധവിശ്വാസങ്ങൾക്കെതിരായ പ്രായോഗിക ഇടപെടൽ അധ്യാ പകരിൽ നിന്നുണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്ത പുരത്ത് നവകേരളം കർമ്മപദ്ധതി ശിൽപശാലയുടെ സമാപനത്തിൽ ക്രോഡീകരണ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം

എസ് സുനിൽകുമാർ കേന്ദ്രകൃഷി മന്ത്രി രാധാമോഹൻ സിംഗ് ഐ

ആർ ഡയറക്ടർ ജനറൽ ഡോ ത്രിലോചൻ മഹാപാത്ര എന്നി വർക്ക് കത്തയച്ചു

സംസ്ഥാനത്ത് തെങ്ങുകൃഷി വ്യാപകമാ ക്കുന്നതിനും നാളികേര ഉൽപാദനം വർധിപ്പിക്കുന്നതിനും നാളി കേര വികസന സെൽ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമി ക്കുകയാണെന്നും ഈ സന്ദർഭത്തിൽ കേരളത്തിന്റെ അഭിമാനമായ കേന്ദ്ര തോട്ടവിള ഗവേഷണ മേഖലാ കേന്ദ്രം അടച്ചുപൂട്ടുന്നതിന് നടത്തുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്നും മന്ത്രി കത്തിൽ പറ ഞ്ഞു കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു ഹാന്റ്ക്സിന്റെ പുതിയ ഉല്പന്ന മായ പ്രീമിയം ഡബിൾ ധോത്തി വിപണിയിലിറക്കുന്നതിന്റെ ഭാഗ മായി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കു കയായിരുന്ന അദ്ദേഹം പ്രശസ്ത തെയ്യം കലാകാരനും കുറുങ്കുഴൽ വിദ്വാനുമായ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ യു

കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്

സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും കോഴിക്കോട് നഗരസഭാ പരിധിയിൽ ഉപയോഗയോഗ്യമായ പൊതുശുചിമുറികൾ നിർമിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മിഷൻ നിർദേശിച്ചു